നാളെ തുടക്കം

മേൽശാന്തി വി എൻ വാസുദേവൻ നമ്പൂതിരി നട തുറന്ന് ശ്രീകോവിലിലെ ദീപങ്ങൾ തെളിക്കും പിന്നീട് പതിനെട്ടാം പടിയിറങ്ങി ആഴി തെളിച്ചശേഷമേ അയ്യപ്പന്മാരെ പടികയറാൻ അനുവദിക്കൂ

സമാപന സമ്മേളനം മിസോറാം ഗവർണർ കുമ്മനം രാജശേഖരൻ ഉദ്ഘാടനം ചെയ്യും

രണ്ടാം ഇന്നിങ്സിൽ ബാറ്റിങ് തുടങ്ങിയ ഓസ്ട്രേലിയയ്ക്ക് വിക്കറ്റുകൾ വീഴുന്നത് തടയാനായില്ല

കളി ഒരു ദ്വിവസം കൂടി ശേഷിക്കെ രണ്ട് വിക്കറ്റുകൾ വീഴ്ത്താനായാൽ ഇന്ത്യയ്ക്ക് ഓസ്ട്രേലിയയ്ക്കെതിരെ ചരിത്രജയം നേടാനാകും